ത സംസ്ഥാനത്തെ പ്രൊഫഷണൽ കോളജുകൾ ഉൾപ്പെടെ മുഴുവൻ കോളജുകളും ജനുവരി നാലിന് തുറക്കും വാർത്തകൾ വിശദമായി പ്രധാൻമന്ത്രി കിസാൻ സമ്മാൻ നിധിയിലെ അടുത്തഘട്ട സാമ്പത്തിക സഹായ വിതരണത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ വീഡിയോ കോൺഫറൻസിലൂടെ തുടക്കം കുറിക്കും ഒൻപത് കോടിയോളം കർഷക ഗുണഭോക്തൃ കുടുംബങ്ങൾക്ക് പതിനെണ്ണായിരം കോടി രൂപയാണ് ധനസഹായം നൽകുന്നത് പരിപാടിയുടെ ഭാഗമായി ആറ് സംസ്ഥാനങ്ങളിലെ കർഷകരുമായി പ്രധാനമന്ത്രി സംവദിക്കും

ഉപഭോക്താവിന്റെ ബാങ്ക് അക്കൌണ്ടിലേക്ക് നേരിട്ടായിരിക്കും തുക കൈമാറ്റം ചടങ്ങിൽ കൃഷിമന്ത്രി നരേന്ദ്രസിങ്ങ് തോമറും പങ്കെടുക്കും

സർവ്വകലാശാലയുടെ ചാൻസലർ കൂടിയാണ് പ്രധാനമന്ത്രി

കെ യിൽ നിന്ന് കേരളം ഉൾപ്പെടെ എട്ട് സംസ്ഥാനങ്ങളിൽ കോവിഡ് ബാധയോടെ യാത്രക്കാർ എത്തിയ സാഹചര്യം ആരോഗ്യ സെക്രട്ടറി രാജേഷ് ഭൂഷൺ അവലോകനം ചെയ്തു സംസ്ഥാനങ്ങളുമായി വിഡിയോ കോൺഫറൻസിങ്ങിലൂടെയാണ് അദ്ദേഹം സാഹചര്യം വിലയിരുത്തിയത് ജനിതക മാറ്റം സംഭവിച്ച പുതിയ കൊറോണ വൈറസ് മൂലമുണ്ടാകുന്ന രോഗം പ്രതിരോധിക്കാൻ ആവശ്യമായ ഒരുക്കങ്ങൾ യോഗം ചർച്ച യു

വിശദാംശങ്ങൾ എയർ സുവിധ പോർട്ടലിൽ നിന്നും ഇമിഗ്രേഷൻ ബ്യൂറോയിൽ നിന്നും ശേഖരിച്ച് അവരെ വിശദ പരിശോധനയ്ക്കും നിരീക്ഷണത്തിനും വിധേയരാക്കണമെന്ന് കേന്ദ്രം നിർദേശിച്ചു സംസ്ഥാന ആരോഗ്യ സെക്രട്ടറിമാരും മുതിർന്ന ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുത്തു

ഉദ്ഘാടന തീയതി പിന്നീട് അറിയിക്കും കേരള പര്യടന പരിപാടിയുടെ ഭാഗമായി കോട്ടയത്ത് ചേർന്ന യോഗത്തിലാണ് മുഖ്യമന്ത്രി ഇക്കാര്യം അറിയിച്ചത് രംഭ നവകേരള വികസന രൂപരേഖ തയാറാക്കുന്നതിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തുന്ന സംസ്ഥാന പര്യടനം ഇന്ന് തിരുവനന്തപുരത്ത് നടത്തും

വിവിധ മേഖലകളിലെ നൂറോളം പ്രമുഖരുമായി മുഖ്യമന്ത്രി കൂടിക്കാഴ്ച്ച നടത്തും

സുസ്ഥിര ഉപഭോക്താവ് എന്നതാണ് ഇത്തവണത്തെ ദിനാചരണ ആശയം സംസ്ഥാനതല ദിനാചരണ പരിപാടി തിരുവനന്തപുരത്ത് മന്ത്രി പി

ഉപഭോക്തൃ സംരക്ഷണത്തിൽ മികച്ച പ്രവർത്തനം കാഴ്ച്ചവെച്ച സംഘടനകൾക്ക് രാജീവ് ഗാന്ധി അവാർഡ് ചടങ്ങിൽ സമ്മാനിക്കും

ആകാശവാണി നിലയങ്ങൾക്കും ദൂരദർശൻ കേന്ദ്രങ്ങൾക്കും പുറമെ ആകാശവാണി വെബ്സൈറ്റിലും മൊബൈൽ ആപ്പിലും പരിപാടി തത്സമയം ലഭ്യമാണ് ഗവൺമെന്റിന്റെ യൂട്യൂബ് ചാനലിലും പരിപാടി കേൾക്കാം

അഞ്ച് ആറ് സെമസ്റ്റർ ക്ലാസുകളും ഗവേഷണ ക്ലാസുകളും പി ജി എല്ലാ സെമസ്റ്ററുകളും ആദ്യം തുടങ്ങും മറ്റ് സെമസ്റ്റർ ക്ലാസുകളെ പറ്റി പിന്നീട് തീരുമാനമെടുക്കും ശനിയാഴ്ച്ചയും പ്രവൃത്തി ദിവസമായിരിക്കും ഓരോ വിദ്യാർത്ഥിക്കും അഞ്ച് മണിക്കൂർ വീതം അധ്യയനം ലഭിക്കുന്ന തരത്തിൽ ക്ലാസുകൾ ക്രമീകരിക്കണം അധ്യാപകരും ജീവനക്കാരും അടുത്ത തിങ്കളാഴ്ച്ച മുതൽ കോളജുകൾ എത്തേണ്ടതാണ് രും എസ്എസ്എൽസി പ്ലസ് ടു പരീക്ഷകൾക്ക് പാഠഭാഗങ്ങൾ കുറക്കേണ്ടെന്ന് ഇന്നലെ തിരുവനന്തപുരത്ത് ചേർന്ന ഉന്നതതല യോഗം തീരുമാനിച്ചു

രവീന്ദ്രനാഥിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം തീരുമാനിച്ചു രും മുസ്ലീം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി

കുഞ്ഞാലിക്കുട്ടി ലോക്സഭാംഗത്വം രാജിവെച്ച് നിയമസഭയിലേക്ക് മത്സരിക്കുമെന്ന് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ

സംസ്ഥാന രാഷ്ട്രീയത്തിൽ മുഴുവൻ സമയ പ്രവർത്തനം നടത്തുന്നതിനാണ് കുഞ്ഞാലിക്കുട്ടിയുടെ രാജി ഇന്നലെ ചേർന്ന മുസ്ലിം ലീഗ് സംസ്ഥാന പ്രവർത്തക സമിതിയിലാണ് തീരുമാനം

നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ ചുമതല കുഞ്ഞാലിക്കുട്ടിക്കും പ്രതിപക്ഷ ഉപനേതാവ് എം

മുനീറിനും നൽകിയിട്ടുണ്ട് രും കാഞ്ഞങ്ങാട്ട് രാഷ്ട്രീയ കൊലപാതകത്തിൽ ഡിവൈഎഫ്ഐ പ്രവർത്തകൻ കുത്തേറ്റ് മരിച്ചു

കൊലപാതകത്തിൽ പ്രതിഷേധിച്ച് കാഞ്ഞങ്ങാട് നഗരസഭാ പരിധിയിൽ എൽഡിഎഫ് ആഹ്വാനം ചെയ്ത ഹർത്താൽ തുടങ്ങി രുര ഐഎസ്എൽ ഫുട്ബോളിൽ എഫ്സി ഗോവക്ക് വിജയം ജംഷധ്പൂർ എഫ്സി യെ ഒന്നിനെതിരെ രണ്ട് ഗോളിനാണ് ഗോവ തോൽപ്പിച്ചത് ക്രിസ്മസ് ആഘോഷങ്ങളെ തുടർന്ന് ഇന്നും നാളെയും മത്സരം ഉണ്ടായിരിക്കില്ല രും തദ്ദേശ സ്ഥാപനങ്ങളിലെ അധ്യക്ഷ ഉപാധ്യക്ഷ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മാർഗനിർദേശം പുറപ്പെടുവിച്ചു തെരഞ്ഞെടുപ്പിന് കുറഞ്ഞത് മൂന്ന് ദിവസം മുൻപ് എല്ലാ അംഗങ്ങൾക്കും യോഗത്തിന്റെ തീയതി സമയം സ്ഥലം എന്നിവ അറിയിക്കുന്ന നോട്ടീസ് നൽകേണ്ടതാണ് ആകെ കൌൺസിലർമാരുടെ എണ്ണത്തിന്റെ പകുതി പേർ യോഗത്തിനെത്തിയില്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് അടുത്ത ദിവസത്തേക്ക് മാറ്റും അന്ന് കോറം തികഞ്ഞില്ലെങ്കിലും തെരഞ്ഞെടുപ്പ് നടത്തും ഒന്നിലേറെ സ്ഥാനാർത്ഥികളുണ്ടെങ്കിൽ വോട്ടെടുപ്പ് നിർബന്ധമാണ് രും മാസം ഈ പ്രതിജ്ഞയെടുക്കാൻ കഴിയാതിരുന്ന അംഗങ്ങൾക്ക് മറ്റന്നാൾ സത്യപ്രതിജ്ഞ ചെയ്യാമെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ വി

രും ബിജെപി കോർ കമ്മറ്റി യോഗം ഇന്ന് കൊച്ചിയിൽ ചേരും തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ബിജെപിയുടെ പ്രകടനം യോഗം വിലയിരുത്തും സംസ്ഥാനത്തിന്റെ ചുമതലക്കാരനായ പ്രഭാരി സി

രാധാകൃഷ്ണൻ യോഗത്തിൽ പങ്കെടുക്കും രും യുവ ചലച്ചിത്ര സംവിധായകൻ ഷാനവാസ് നരണിപ്പുഴ അന്തരിച്ചു

ഷാനവാസിനെ കോയമ്പത്തൂരിൽ നിന്ന് വിദഗ്ധ ചികിത്സക്കായി ഇന്നലെ കൊച്ചിയിലെത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല സൂഫിയും സുജാതയും കരി എന്നീ ചിത്രങ്ങളുടെ സംവിധായകനായിരുന്നു രുഭ മലബാർ ദേവസ്വം ബോർഡിലെ ജീവനക്കാരുടെ അനിശ്ചിതകാല സമരത്തിന് ബിജെപി പൂർണ പിന്തുണ പ്രഖ്യാപിച്ചു പ്രശ്ന പരിഹാമുണ്ടായില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധവുമായി ബിജെപി രംഗത്തിറങ്ങുമെന്ന് സംസ്ഥാന പ്രസിഡന്റ് കെ

മികച്ച ഓഫീസുകൾക്ക് ഗ്രേഡ് നൽകി ഹരിത ഓഫീസ് സാക്ഷ്യപത്രം നൽകും